ആയുധ നിയമ ഭേദഗതിബിൽ ഇന്ന് സഭ പരിഗണിക്കും

സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്വേഷണം സിബിഐ ക്കു വിട്ടു

ഇന്ന് മനുഷ്യാവകാശദിനം ലോക്സഭ പാസ്സാക്കിയ പൌരത്വഭേദഗതിബിൽ നാളെ രാജ്യ സഭയിൽ അവതരിപ്പിക്കുമെന്ന് ബിജെപി കേന്ദ്രങ്ങൾ ന്യൂഡൽഹി യിൽ അറിയിച്ചു

ഇന്ത്യയിൽ അഭയാർത്ഥികളായി കഴിയുന്ന ഒരു ലക്ഷത്തില ധികം ശ്രീലങ്കൻ തമിഴർക്ക് പൌരത്വം നൽകുന്ന കാര്യം പരിഗണി ക്കണമെന്ന് ശ്രീ ശ്രീ രവിശങ്കർ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു

ലോക്സഭ ഇന്നലെ പാസ്സാ ക്കിയ പൌരത്വ ഭേദഗതി ബിൽ പ്രകാരം അഭയാർത്ഥികളായ ഹിന്ദു സിഖ് ബുദ്ധ ജെയ്ൻ പാഴ്സി കൃസ്ത്യൻ വിഭാഗക്കാർക്ക് പൌരത്വം നൽകാനാണ് ഗവ

പാക്കിസ്ഥാൻ ബംഗ്ലാ ദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ന്യൂന്പക്ഷ വിഭാഗ ത്തിൽ പെടുന്നവർക്കാണ് പൌരത്വം നൽകാൻ ്ഗവ് നീക്കം നട ത്തുന്നത് പൌരത്വഭേദഗതി ബിൽ തീർത്തും ഭൂരണ്ഘട്ടനാ വിരുദ്ധമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദ്ദംബരം പറഞ്ഞു ഇതോടെ ബില്ലിനെ സംബന്ധിച്ച പോരാട്ടം സുപ്രീംകോടതിയിലേക്ക് പോവു കയാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അഭിപ്രായപ്പെട്ടു തെരഞ്ഞെടുക്ക പ്പെട്ട പാർലമെന്റ് അംഗുങ്ങൾ അവരുടെ ഉത്തരവാദിത്വം അഭിഭാ ഷകർക്കും ജഡ്ജിമാർക്കും കൈമാറുകയാണെന്നും ചിദംബരം പറഞ്ഞു പാർലമെന്റിലും പരിസരത്തും സുരക്ഷ ശക്തമാക്കി ലോക്സ ഭയിൽ ഇന്ന്ലെ പൌരത്വഭേദഗതിബിൽ ചർച്ച നടക്കുന്നതിനിടെ എംപി യാണെന്ന് പറഞ്ഞ് വരുൺമാധവ് എന്ന ആൾ പാർല മെന്റിന്റെ സെൻട്രൽ ലൈബ്രറിയിൽ പ്രവേശിക്കാൻ ശ്രമം നട ത്തിയ സാഹചര്യത്തിലാണ് സുരക്ഷ കർശനമാക്കിയത് ഇയാൾ പറഞ്ഞത് തെറ്റാണെന്ന് കണ്ടെത്തിയ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അലാറം മുഴക്കുകയായിരുന്നു ആയുധ നിയമഭേദഗതി ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും നിരോധിത ആയുധങ്ങളും വെടി ക്കോപ്പുകളും നിയമവിരുദ്ധമായി നിർമിക്കുന്നതിനും വിൽക്കു ന്നതിനും ശിക്ഷ വർധിപ്പിക്കുന്ന ബിൽ ലോക്സഭ ഇന്നലെ പാസ്സാ ക്കിയിരുന്നു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും ആയുധ ങ്ങളും വെടിക്കോപ്പുകളും കാര്യക്ഷമമായി നിയന്ത്രിക്കേണ്ടതും ക്രമ സമാധാനം പാലിക്കേണ്ടതും അത്യാവശ്യമാണെന്നും അമിത്ഷാ ചർച്ചക്ക് മറുപടി പറയവേ ലോക്സഭയിൽ അറിയിച്ചിരുന്നു നിയമ ത്തിലെ വ്യവസ്ഥകൾ കായികതാരങ്ങളെ ഒരുതരത്തിലും ബാധിക്കി ല്ലെന്നും അദ്ദേഹം സഭയ്ക്ക് ഉറപ്പ് നൽകി നിയമവിരുദ്ധമായി ആയുധങ്ങൾ നിർമിക്കുന്നവർക്കും വിൽക്കു ന്നവർക്കും ഏഴ് വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഭേദഗതി

പൊലീസിന്റെ ആയുധങ്ങൾ തട്ടിയെട്ടുക്കുന്നവർക്ക് ജീവപ ര്യന്തമാണ് ശിക്ഷ

വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് അടി യന്തര പരിഹാരം കാണാൻ മന്ത്രി കെ രാജുവിന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ നടത്തിവന്ന വനഅദാലത്ത് സമാപിച്ചു

സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് പ്രതിപ ക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പോലും അവതാളത്തിലായെന്ന് അദ്ദേഹം തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഇത്രയും ഗുരുതരമായ പ്രതിസന്ധി അടുത്തകാല്പത്തൊന്നും ഉണ്ടാ യിട്ടില്ല ജിഎസ്ടി നഷ്ടപരിഹാരം കേന്ദ്രം നൂൽകാത്ത് തെറ്റായ നടപടിയാണെന്നും എന്നാൽ സാമ്പത്തിക പ്രപ്രതിസന്ധിയുടെ കാരണം ഇതല്ലെന്നും പ്രതിപക്ഷനേതാവ് പറുത്തു

പാഴ്ച്ച്ചെലവുകൾ ഒഴിവാക്കാനും നികുതി വരുമാനം വർധിപ്പിക്കാനും ഗ്വൺമെന്റ് നടപടി സ്വീകരിക്കുന്നി ല്ലെന്ന് ചെന്നിത്തല പറഞ്ഞു

സംസ്ഥാനത്തിന്റെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയും അഴിമതിയും സംബന്ധിച്ച് വെളളിയാഴ്ച യു്ഡിഎഫ് ധവളപത്രം പുറത്തിറക്കുമെന്നും പ്രതി പക്ഷനേതാവ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേ ശയാത്രകൊണ്ട് സംസ്ഥാനത്തിന് എന്തു നേട്ടമുണ്ടായെന്നും അദ്ദേഹം ചോദിച്ചു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സമയത്താണ് ഒന്നേ കാൽകോടി രൂപ ചെലവഴിച്ച് ഗവ

അക്കാദമിക് കാര്യങ്ങൾക്കായി കേന്ദ്രം നൽകുന്ന പണം ധൂർത്തടിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു

പുതിയകാലം പുതിയ നിർമാണം എന്ന കാഴ്ചപ്പാടോടെയാണ് ഗവ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു

വയലിനിസ്റ്റ് ബാലഭാസ്കൂറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഗവ സിബിഐക്ക് വിട്ടു ഇതു സംബന്ധിച്ച് ഗവ

ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാംഘട്ട പ്രചാ രണം ഇന്ന് പ്രൈകിട്ട് അവസാനിക്കും

അവസാനദിവസമായ ഇന്ന് ബോക്സിംഗിൽ എട്ട് സ്വർണമെഡലുകൾക്കും ജൂഡോയിൽ ഒരു സ്വർണമെഡലിനും വേണ്ടിയാണ് പോരാട്ടം സ്കാഷിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ താരങ്ങൾ പാക്കിസ്ഥാ നുമായി ഏറ്റുമുട്ടും

തമിഴ്നാട് കർണാടക രഞ്ജിട്രോഫി മത്സരത്തിനിടെ അമ്പയ റുടെ തീരുമാനത്തോട് വിയോജിച്ച ഇന്ത്യൻ ടെസ്റ്റ് താരം മുരളി വിജയ്ക്ക് പിഴ ശിക്ഷ വിധിച്ചു

ഗ്വൺമെന്റിന് ഇട പെടാൻ മാത്രം ഗൌരവം ഈ വിഷയത്തിലില്ലെന്നാണ് തന്റെ വില യിരുത്തലെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു അമ്മ പ്രസിഡന്റ് മോഹൻലാലിനും ഫെഫ്ക ജനറൽ സെക്ര ട്ടറി ബി ഉണ്ണികൃഷ്ണനും ഇതു സംബ്ലന്ധിച്ച് കത്തു നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്ന് മനുഷ്യാവകാശ് ദിനം

ദേശം ഭാഷ്ട് വംശം ജാതി മതം തുടങ്ങി എല്ലാ വ്യത്യസ്തത കൾക്കും അത്ീതമായി എല്ലാവർക്കും തുല്യമായ മനുഷ്യാവകാശം ഉറപ്പുവരൂത്തുന്നതായിരുന്നു പ്രഖ്യാപനം

മനുഷ്യവകാശ ദിനത്തോനു്ബന്ധിച്ച് രാജ്യത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പി ച്ചുവരുന്നു കേരളത്തെ മാറ്റിമറിച്ച നവോത്ഥാനപ്പോരാട്ടത്തിന്റെ സൃഷ്ടിയാണ് മഹാകവി അക്കിത്തമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കാടാമ്പുഴ ദേവസ്ത്തിന്റെ തൃക്കാർത്തിക പുരസ്കാരം അക്കിത്തതിന് സമർപ്പിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ടിയും എം ആർ ബിയുമൊക്കെ തുടക്കംകുറിച്ച വിപ്തവവഴിയിലെ കവിശ്രേഷ്ഠനാണ് അക്കിത്തമെന്നും മന്ത്രി പറ ഞ്ഞു

നിയമ നിർമാണത്തിലൂടെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത കോഴിക്കോട് കോംട്രസ്റ്റ് വീവിങ്ങ് ഫാക്ടറി ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിന് വ്യവസായ ശ്മന്ത്രി നടപടി സ്വീകരിക്കണമെന്ന് മുൻ മന്ത്രി കെ പി രാജേന്ദ്രൻ ്ആവശ്യപ്പെട്ടു

വിലക്കയറ്റത്തിനും തൊഴിലില്ലായ് മക്കും ഗവൺമെന്റ് ധൂർത്തിനുമെതിരെ മറ്റന്നാൾ കലക്ട്രേറ്റ് മാർച്ച് നടത്തുമെന്ന് യു ഡി എഫ് ഭാരവാഹികൾ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ കെ പി സി സി പ്രസിഡന്റ് മുലപ്പള്ളി രാമചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും